സംസ്ഥാനത്തെ വിവിധ ശിവക്ഷേത്ര ങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ങ്ങ ൽ രാജ്യസുർക്ഷയുടെ കാര്യത്തിൽ ആരും രാഷ്ട്രീയം കളിക്കരു തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

റഫാൽ വിഷയത്തിലെ രാഷ്ട്രീയം രാജ്യത്തിന് ദോഷകരമായെന്നും ഇന്ത്യയുടെ കൈവശം റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടികൾ കൂടുതൽ ശക്തമായേനേയെന്നും അദ്ദേഹം അറിയി ച്ചു

ഓരോ പട്ടാളക്കാർന്റെയും രക്തം നമുക്ക് അമൂല്യ മാണ് ഒരു രാജ്യത്തിനും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാവില്ലെന്നും മോദി പറഞ്ഞു

കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതു കൊണ്ടാണ് വ്യോമസേനാ പൈലറ്റ് അഭിനന്ദൻ വർധമാനെ പോലുള്ളവർക്ക് ജീവന് ഭീഷണി നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പാക്കിസ്ഥാന്റെ തടവിൽ കഴിഞ്ഞ മൂന്ന് ദിവസം മാനസിക പീഡ നത്തിന് വിധേയനായതായി വ്യോമ സേനാ വിങ് കമാൻഡർ അഭി നന്ദൻ വർധമാൻ പറഞ്ഞു ന്യൂഡൽഹിയിൽ വ്യോമസേനയുടെ ആരോഗ്യ കേന്ദ്രത്തിൽ മാനസിക ശാരീരിക പരിശോധനയിലാണ് അഭിനന്ദൻ വ്യോമസേനാ അധികൃതരോട് ഇക്കാരൃം വെളിപ്പെടു ത്തിയത് എന്നാൽ പാക് അധികൃതർ ശാരീരികമായി ഉപദ്രവിച്ചിട്ടി ല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ കേന്ദ്രമന്ത്രി നിർമല സീതാരാ മൻ അഭിനന്ദനെ സന്ദർശിച്ചു അഭിനന്ദൻ വർധമാനെ തടവിലാക്കിയതിന് പിന്നാലെ ഇന്ത്യ നിർത്തി വെച്ച പാക്കിസ്ഥാൻ ഡൽഹി ലാഹോർ സംജോത എക്സ്പ്രസിന്റെ സർവീസ് ഇന്ന് പുനരാരംഭിക്കും പാക്കിസ്ഥാനിൽ നിന്ന് ട്രെയിൻ സർവീസ് നാളെ തുടങ്ങും

സദാശിവം പറഞ്ഞു കാസർകോട് പെരിയ കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്ത് മൂന്നാ മത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം ഡിഗ്രി നേടുന്നത് കൊണ്ട് അവ സാനിപ്പിക്കേണ്ടതല്ലെന്നും സമൂഹത്തിന് അനിവാര്യമായ സമയത്ത് ഉപകരിക്കുന്നതാകണമെന്നും ഗവർണർ പറഞ്ഞു ക്ന്ദ്രസർവക ലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എസ് വി ശേഷഗിരി റാവു അധ്യക്ഷനായി ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് കഴിയുമെന്നും സാങ്കേതിക യുവതലമുറ അതി നേറ്റവും യോഗ്യരാണെന്നും കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കൊച്ചിയിൽ പറഞ്ഞു

യുവതലമുറയുടെ സാങ്കേതിക വൈദഗ്ദ്യം ലോകത്തിന് മുന്നിൽ ഉപയോഗപ്പെടുത്താ നാണ് ഹാക്കത്തോൺ എന്ന നവീന ആശയം മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയതെന്നും അദ്ദേഹം വൃക്തമാക്കി മൂവായിരത്തോളം സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തോളം വിദ്യാർഥികൾ ഹാക്കത്തോണിന്റെ ആദ്യ റൌണ്ടിൽ പങ്കെടുത്തെന്ന് ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ എഡ്യുക്കേഷൻ ഡയറക്ടർ അനിൽ സഹസ്രബുദ്ധ ചടങ്ങിൽ പറഞ്ഞു

അടിമാലി താലൂക്ക് ആശുപത്രി യുടെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടിമാലി പീരുമേട് താലൂക്ക് ആശുപത്രികൾ ആദ്യഘട്ട ത്തിൽ സൂപ്പർസ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം എം മണി അധ്യക്ഷനായിരുന്നു സംസ്ഥാനത്തെ ആദ്യ ശബരിമല ഇടത്താവള സ്മുച്ചയത്തിന് കഴ ക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ മന്ത്രി കടക്ംപള്ളി സുരേന്ദ്രൻ ഇന്നലെ തറക്കല്ലിട്ടു പത്ത്കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ആധുനിക സൌകര്യങ്ങളോടെ സമുച്ചയം നിർമിക്കു ന്നത്

കൂടാതെ ശബരിമല ദർശനത്തിന് ഓൺലൈൻ ബുക്കിങ് കൌണ്ടർ ഇന്റർനെറ്റ് വൈഫൈ സംവിധാനം ലോക്കർ സൌകര്യം തുടങ്ങി യവയും ഇതിന് അനുബന്ധമായി ഉണ്ടാകും

കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ സന്ദർശിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നതെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെരിയയിൽ പറഞ്ഞു

ഡി എഫ് നേതൃത്വത്തിൽ കാസർകോട് പെരിയയിൽ നടന്ന പ്രതി രോധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാഷ്ട്രീയ സ്ഥിതികൾ എന്നിവർ ദിവസത്തെ യോഗത്തിൽ ചർച്ചയാകും സ്ഥാനാർഥികളെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസ് തെരഞ്ഞെ ടുപ്പ് സമിതി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും ഇന്നും നാളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ സാധ്യതാ പട്ടികകൾ നൽകും സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും

ലോക്സഭാ തെരഞ്ഞെ ടുപ്പിൽ സിപിഐ മത്സരിക്കുന്ന തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് മണ്ഡലങ്ങളിലേക്ക് പാർട്ടി ജില്ലാ കൌൺസിലു കൾ തയാറാക്കിയ സ്ഥാനാർഥി നിർദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും മറ്റന്നാൾ മുതൽ മൂന്ന് ദിവസം ചേരുന്ന ദേശീയ സെക്രട്ട റിയേറ്റും എക്സിക്യൂട്ടീവും സ്ഥാനാർഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ കൃഷിയും വിനോദസഞ്ചാരവും ബന്ധപ്പെടുത്തി മാത്രമേ വികസനം സാധ്യമാകൂവെന്ന് മന്ത്രി എം

കാലിവളർത്തൽ ഉൾപ്പെടെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹി പ്പിക്കാനും പരിസ്ഥിതി പാഠങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നേറാനും നാം ശ്രമിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു

ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം ഹൈദരാബാദിൽ പ്രവിക്കറ്റിനാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്

ഐ എസ് എൽ ഫുട്ബോളിൽ പൂനെ എഫ് സിക്ക് ജയം പൂനെയിൽ മുംബൈ സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് പൂനെ തോൽപ്പിച്ചത് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ് സി ഇന്ന് നേരൊക്ക എഫ് സിയെ നേരിടും വൈകിട്ട് അഞ്ചിന് കോഴിക്കോട്ടാണ് മത്സ രം നാളെ മഹാശിവരാത്രി

വിശ്വാസികൾക്ക് പിതൃതർപ്പണത്തിന് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പെരിയാർ തീരത്ത് അപ കടമുണ്ടാവാതിരിക്കാൻ പുഴയിൽ മണൽചാക്കുകൾ നിരത്തിയിട്ടു ണ്ട് ആലുവ നഗരസഭ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളമടക്കം സൌകര്യങ്ങൾ ഒരുക്കി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും സ്ഥലത്ത് ക്യാംപ് ചെയ്യുന്നുണ്ട് ആലുവ മണപ്പുറത്തേക്ക് പ്രത്യേക ബസ് സർവീസും കെ എസ് ആർ ടി

തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ശംഖുമുഖം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ് നാന ഘ ട്ട ത്തിൽ പതി നാ യി ര ങ്ങൾക്ക് ബലിതർപ്പണത്തിന് ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയി ട്ടുണ്ട് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഗോഎയർ അബൂ ദാബിയിലേയ്ക്ക് വിമാനസർവീസ് ആരംഭിച്ചതിനെ അബൂദാബി എയർപോർട്ട് സ്വാഗതം ചെയ്തു തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് കണ്ണൂരിനും അബൂദാബിക്കുമിടയിൽ ഗോഎയർ സർവീസ് നടത്തുക കണ്ണൂരിൽ നിന്ന് ആദ്യ വിമാന സർവീസിന് ഇന്നലെ അബൂദാബിയിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത് ഇന്ത്യയെ മുഖ്യ യാത്രാ മാർക്കറ്റായാണ് കരുതുന്നതെന്നും ഇതിലൂടെ ഇന്ത്യ യുമായി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കഴിയുമെന്നും അബൂ ദാബി എയർപോർട്ട് സി

കണ്ണൂർ തലശ്ശേരിക്കടുത്ത് ചൊക്സി അണിയാരത്ത് ബൈക്കിന് പിറ കിൽ ബസ്സിടിച്ച് യുവാവ് മരിച്ചു ബൈക്കിന് പിറകിൽ യാത്ര ചെയ്ത കടവത്തൂരിലെ ഷിനോജാണ് മരിച്ചത് ഇന്നലെ രാത്രിയാ യിരുന്നു അപകടം പൊതുജനങ്ങൾക്ക് നവീന സാങ്കേതിക വിദ്യയുടെ സഹായ ത്തോടെ സുതാര്യമായ സേവനം കാലതാമസം കൂടാതെ ലഭ്യമാ ക്കുന്ന തരത്തിൽ വില്ലേജ് ഓഫീസുകളെ ജനസൌഹൃദമാക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി ഇ

കാസർകോട് വോർഖാഡിയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ തിരുശേഷിപ്പുകളാണ് പത്തനംതിട്ട ആറന്മുള യിൽ കണ്ടെത്തിയതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സംസ്ഥാന സാംസ്കാരിക വകുപ്പ് പുരാവസ്തു വകുപ്പ് ആറന്മുള പമ്പ ഗവേഷക സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദ്രാവിഡ ആരാധനകളും അനുഷ്ടാനങ്ങളുമായി ബന്ധ പ്പെട്ട നദീ തട സംസ്കാരം പമ്പാനദിക്കുണ്ടെന്നും ഇതു സംബ ന്ധിച്ച് തുടർ പഠനം അനിവാര്യമാണെന്നും മന്ത്രി വൃക്തമാക്കി അയ്യപ്പ ധർമവും സനാതന ധർമവും ചവിട്ടിമെതിച്ചവർക്കെതിരെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണമെന്ന് ശബരിമല കർമ സമിതി ദേശീയ ഉപാധ്യക്ഷൻ ടി പി സെൻകുമാർ പറഞ്ഞു